ഊർജ്ജിതമാക്കാനായ പ്രത്യേക വിഭാഗം രൂപീകരിക്കും

ലൈഫ് മിഷൻ പദ്ധിതി ഗുണഭോക്താക്കളുടെ പ്രായപരിധി ന് ഉയർത്തുന്നത് പരിഗ്ഗണിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ

ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ കളിക്കളത്തിൽ

സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ട്രാഫിക് ഉൾപ്പെടെയുള്ള യൂണിറ്റുകളിൽ നിലവിലുള്ള ഫെയ്സ് ബുക്ക് ടിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ കൂടുതൽ ശക്തിപ്പെടുത്തും കമ്പ്യൂട്ടർ പരിജ്ഞാനവും മലയാളം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യവുമുള്ള പോലീസുകാരെ ഇതിനായി നിയോഗിക്കും

മന്ത്രി എ

എമ്മിന് തെല്ലും ആത്മാർത്ഥതയില്ലെന്നാണ് സമാധാന സമ്മേളനത്തിലെ ഇന്നത്തെ സംഭവ വികാസങ്ങൾ തെളിയിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാദ്ധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ചരിത്രം അവർക്ക് മാപ്പു നൽകില്ലെന്നുമുള്ള മന്ത്രി എ

ബാലന്റെ പ്രസ്താവന സി

ഇത്രയും ക്രൂരമായ കൊലപാതകം നടന്ന ശേഷം നടന്ന ഇന്നത്തെ യോഗത്തിൽ യു ഡി

എമ്മിന്റെ പ്രതിനികളെ് പങ്കെടുപ്പിക്കുകുയം ചെയ്തത് യോഗം അട്ടിമറിക്കുന്നതിനായിരുന്നു

എഫിന്റെ എം

പിയെ വേദിയിലിരുത്തിയത് സ്മാന്നു ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും ശ്രീ ചെന്നിത്തുള്ളി പ്രിസ്താവനയിൽ കുറ്റപ്പെടുത്തി

സുധാകരന്റെ സമരപ്പന്തലിൽ യു ഡി എഫ് നേതൃയോഗം ചേരുമെന്ന് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു ട്ടടടടട മനുഷ്യാവകാശ കമ്മീഷൻ ലൈഫ്മിഷൻ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കു ന്നതിനുള്ള പ്രായപരിധി ഉയർത്തുന്ന കാര്യം ഗൌരവമായി പരിശോധി ക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ലൈഫ്മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിന്റെ കാലാവധി മൂന്നുവർഷമാക്കി ഉയർത്തണമെന്നും കമ്മീഷൻ ഉത്തർ വിൽ പറഞ്ഞു ഇത്തരം നടപടികൾ ലിസ്റ്റിൽ അർഹതയുള്ള മുഴുവൻ അപേക്ഷകർക്കും ആനുകൂല്യം ലഭി ക്കാൻ സഹായകരമാകും അതേസമയം ഭൂരഹിത ഭവനരഹിത പദ്ധതിയുടെ ആനുകൂല്യ ങ്ങൾ ലഭ്യമാകുന്നതിന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥ കൾ പാലിക്കാൻ ഗുണഭോക്താക്കൾ ബാധ്യസ്ഥരാണെന്നും ഉത്തര വിൽ പറയുന്നു

കുടുംബശ്രീബസാർ

ഒ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയെ ലോക രാഷ്ട്രങ്ങളിൽ ഒന്നാമതാക്കണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് ഐ എസ് ആർ

ചെലവു ചുരുങ്ങിയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഐ

ഒ യുടെ ലക്ഷ്യമെന്നും തിരുച്ചിറപ്പള്ളി ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു

ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് തടയുക മണ്ണെണ്ണ സബ്സിഡി കുടിശ്ശിക ഉടൻ നൽകുക മണ്ണെണ്ണയുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു പ്രതിഷേധപരിപാടി അതേസമയം മത്സ്യബന്ധന ബോട്ടുടമകൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുമെന്നറിയിച്ചു

അടുത്തമാസം രണ്ടിനാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ശനിയാഴ്ച രാവിലെ കുത്തിയോട്ട വ്രതം ആരംഭിക്കും

ഉത്സവ മേഖലയിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി നടപ്പാക്കും

പ്രത്യേക സർവീസുകൾ നടത്തും ട്ടടടടട ആറ്റുകാൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നാളെ ഉത്സവം ആരംഭിക്കാനിരിക്കെ ഏറ്റെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്ന് വി

എഠഎൽഎ തിരുവന്തപുരം നിയോജകമണ്ഡലത്തിലെ റോഡുകൾ കുടിവെള്ളം സ്വിവറേജ് എന്നീ പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിന് വിളിച്ചുചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ശ്രി ശിവകുമാർ ഈ നിർദ്ദേശം നൽകിയത്

ജമാഅത്തിൽ രജിസ്ടർ ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വിവാഹം കഠിനംകുളം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പരാതിക്കാരിക്കും കുടുംബത്തിനും ഭർത്താവിന്റെ കുടുംബത്തിനും വിവാഹം നടന്ന ഇസ്മാലിക് സെന്ററിന്റെ് സെക്രട്ടറിക്കും എതിരെയുള്ള നടപടി പിൻവലിച്ച് മാസവരി സ്വീകരിക്കണമെന്നും കമ്മീഷൻ തീരുമാനത്തിന്റെ പകർപ്പ് ജമാ അത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നും ജമാ അത്ത് കമ്മിറ്റിക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നിൽകിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം നടപ്പാക്കാത്ത സാഹചര്യമുണ്ടായാൽ ജമാ അത്ത് കമ്മിറ്റിക്കെതിരെ നിയമാനുസൃത നടപടികൾക്കായി ശുപാർശ ചെയ്യുമെന്നും കമ്മീഷനംഗം എം

വാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പ് വരുത്തുക വാഴ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതു് വഴി സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഴ മഹോത്സവം സംഘടിപ്പിച്ചത്

സ്വന്തം ഭാഷയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടേയും കടമയാണെന്ന് ഓർമിപ്പിക്കുന്നു ഈ ദിനം ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഭാഷാ പ്രതിജ്ഞ ചൊല്ലി വാസുദേവൻ നായർ എഴുതിയ പ്രതിജ്ഞ ശ്രീ എം ടി വിദ്യാലയങ്ങളിലും ഭാഷാ സാംസ്കാരിക സംസ്ഥാനത്തെ പരിപാടികളിലും ചൊല്ലേണ്ട പ്രതിജ്ഞയായി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്

സമ്മേളന നഗരിയിൽ ഉയർത്താനുളള പതാക കയ്യൂരിൽ നിന്നും കൊടിമരം വയലാറിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് ഈ റാലികൾ വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ സംഗ്ലൂമിക്കും

കുത്തിയോട്ടക്കാർക്ക് ഇന്ന് വിശ്രമദിനമാണ് നാളെ പുലർച്ചെയാണ് കുത്തിയോട്ടങ്ങൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്